വികസന ഫണ്ട് രാജ്യത്തെ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി ബഹിരാകാശ മേഖലയിലെ പരിഷ്കരണം രാജ്യത്തിന്റെ സ്വയം പര്യാപ്തയിലേക്കുള്ള മറ്റൊരു ചുപ്പൂടുവയ്പ്പെന്നും ശ്രീ നരേന്ദ്രമോദി

നിബന്ധനകൾ ഇന്ന് മുതൽ പ്രാബലൃത്തിൽ

പുരോഗമിക്കുന്നു സ്വർണ വിലയിൽ നേരിയ വർദ്ധന

സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനും പ്രകർഷകർക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യമൊരുക്കുന്നതിനും മന്ത്രിസഭാ തീരുമാനം ചെയ്തു

ബഹിരാകാശ മേഖലയിലെ പരിഷ്കരണ നടപടികൾ രാജ്യത്തെ സ്വയംപര്യാപ്തതയിലേക്ക് നയിക്കുന്ന മറ്റൊരു ധീരമായ കാൽവയ്പ്പാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

രാജ്യത്ത് ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ വിപുലപ്പെടുത്തുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം മുദ്രാ യോജന പ്രകാരം ശിശു വായ്പ വിഭാഗത്തിൽ പലിശയിനത്തിൽ രണ്ട് ശതമാനം കുറവ് ലഭിക്കുന്നത് ഒട്ടേറെ പേർക്ക് ഗുണകരമാകുമെന്ന് ശ്രീ നരേന്ദ്ര മോദി പറഞ്ഞു ഉത്തർപ്രദേശിലെ ഖുശിനഗർ വിമാനത്താവളത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമാക്കാനുള്ള പ്രഖ്യാപനം സംസ്ഥാനത്തെ വിനോദ സഞ്ചാര മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു

സംസ്ഥാനത്ത് വിവിധ പ്രദേശങ്ങളിൽ രോഗ വ്യാപനം കൂടിയ സാഹചരൃത്തിൽ ആറ് ജില്ലകളിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുച്ചിറപ്പള്ളി വാർത്താ വിഭാഗം മേധാവി ഡോ

പരമേശ്വരൻ

സി എം ആർ

സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇന്നലെ ചേർന്ന സർവ്വകക്ഷി യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി മമത ബാനർജിയാണ് തീരുമാനം പ്രഖ്യാപിച്ചത് എന്നാൽ കൂടുതൽ ഇളവുകളോടെയാവും ലോക്ഡൌൺ ദീർഘിപ്പിക്കുന്നതെന്ന് മുഖൃമന്ത്രി വൃക്തമാക്കി

വരുന്ന എല്ലാവരും കോവിഡ് ജാഗ്രതാ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണമെന്നും ഉപാധികൾ വ്യക്തമാക്കുന്നു

ജനങ്ങളുടെ ജാഗ്രത കുറയുന്നതിനാലാണ് നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കോവിഡ് മാനദണ്ഡം പാലിക്കാത്തവരോട് ഇനി ഉപദേശമില്ലെന്നും പിഴ അടക്കം കർശന നടപടികളിലേക്ക് നീങ്ങുമെന്നും ഡിജിപി വൃക്തമാക്കി

എസ് എൽ

ഒരു റിപ്പോർട്ട്

അടിയന്തരാവസ്ഥാ പ്രഖ്യാപനത്തെ തുടർന്ന് പൌരാവകാശങ്ങൾ റദ്ദാക്കപ്പെടുകയും പത്ര മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തു രണ്ട് വർഷത്തോളം നീണ്ടു നിന്ന അടിയ്ന്തരാവസ്ഥാ കാലത്ത് നിരവധി മനുഷ്യാവകാശ ധ്വംസനങ്ങൾ രാജ്യമാകെ അരങ്ങേറിയതായാണ് പിൽക്കാല റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്

സ്വർണ വിലയിൽ നേരിയ വർദ്ധന